ഇന്ന് ഉത്രാടം തിരുവോണ്ത്തെ വരവേൽക്കാൻ മലയാളികൾ അവസാന്പട്ടുഒരുക്കത്തിൽ

തിലോ ത്തമൻ വിക്രം ലാന്ററുമായി ബന്ധം സ്ഥാപിക്കാൻ സാധ്യമായ് എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാ ണെന്ന് ഐ എസ് ആർ ഒ മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കുന്ന കാര്യത്തിൽ തുടർ നടപടികൾ ആലോചിക്കാൻ നഗരസഭയുടെ പ്രത്യേക കൌൺസിൽ യോഗം പുരോഗമിക്കുന്നു

ജമ്മു കശ്മീരിലെ സോപോറിൽ എട്ട് ലഷ്കർ ഇ ത്വയ്ബ ഭീകരരെ അറസ്റ്റ് ചെയ്തു

പ്രദേശവാസികളെ ഭീഷണിപ്പെടുത്തുകയും ആക്രമി ക്കുകയും ചെയ്ത ഭീകരരാണ് പിടിയിലായത് രണ്ടു ദിവസം മുമ്പ് സോപോറിൽ പഴക്കച്ചവടക്കാരന്റെ വീട് ആക്രമിച്ച ഭീകരർ രണ്ടുവയ സുകാരി ഉൾപ്പെടെ നാലുപേരെ പരിക്കേൽപ്പിച്ചിരുന്നു

ദക്ഷിണേന്തൃയിൽ ഭീകരാക്രമണത്തിന് സാധൃതയുണ്ടെന്ന കരസേനാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത തുട രുന്നു ജനങ്ങൾ കൂടുന്ന ബസ് സ്റ്റാന്റുകളിലും റെയിൽവെ സ്റ്റേഷനുക ളിലും മറ്റും പൊലീസ് ജാഗ്രത പുലർത്തുന്നുണ്ട് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് തിരക്ക് വർദ്ധിക്കുന്ന സ്ഥലങ്ങളിലും കൂടുതൽ പൊലീസിനെ നിയോഗിച്ചു ഗുജറാത്ത് തീരത്ത് തീവ്രവാദികളെത്തിയെന്ന് സംശയിക്കുന്ന ആളൊ ഴിഞ്ഞ ബോട്ട് കണ്ടെത്തിയതിനെ തുടർന്നാണ് കരുസേന ഭീകരാഗ്ര ഇന്ത്യയിൽ നിന്നു നേപ്പാളിലേക്ക് ആദ്യ വാതക പൈപ്പ്ലൈൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേപ്പാൾ പ്രധാനമന്ത്രി കെ

ദക്ഷിണേഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര വാതക പൈപ്പ്ലൈനാണ് ഇത്

നാടും നഗരവും തിരുവോണമാഘോഷിക്കുന്നതിന് വിഭവങ്ങളൊരുക്കാൻ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ് നാളെ പൊന്നിൽ ചിങ്ങപ്പുലരിയിലെ തിരുവോണത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മല യാളികൾ ആഹ്ലാദത്തോടെ കാത്തിരിക്കുന്നു

വർണ്ണപകിട്ടേ റിയ പുതുവസ്ത്രങ്ങളുമായി വഴിയോരക്കച്ചവടം പൊടിപൊടിക്കുമ്പോൾ നഗരങ്ങളിലെ വലുതം ചെറുതുമായ വസ്ത്രശാലകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെയും ജില്ലാ ഭരണകൂട ങ്ങളുടെയും നേതൃത്വത്തിൽ നാടെങ്ങും വിവിധ ആഘോഷ പരിപാടി കൾ തുടരുകയാണ്

കേരളം ലോകത്തിന് നൽകുന്ന സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടേയും സന്ദേ ശമാകട്ടെ നമ്മുടെ ഓണാഘോഷമെന്ന് ഗവർണർ ആശംസിച്ചു ഈ വർഷത്തെ ഓണം വാരാഘോഷ പരിപാടിക്ക് സംസ്ഥാനത്ത് ഇന്ന് തിരിതെളിയും വൈകീട്ട് കനകക്കുന്നിലെ നിശാഗന്ധിയിൽ മുഖ്യ മന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മികച്ച ചലച്ചിത്ര നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കീർത്തി സുരേഷും ചലച്ചിത്ര താരം ടൊവിനോ തോമസും മുഖ്യാതിഥികളായി പങ്കെടുക്കും

ഓണക്കിറ്റില്ലെങ്കിലും നിർധനരായ ആളുകൾക്ക് ഗവൺമെൻറ്റ് മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ടെന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

കോടാനുകോടി രൂപയുടെ ബാധ്യത ഏറ്റടെത്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇതെല്ലാം നിർവ്വഹിക്കുന്നതെന്നും അധിക ചിലവ് ഇന്നത്തെ സാഹചര്യത്തിൽ ഗവൺമെന്റിന് ഏറ്റെടുക്കാനാവില്ലെന്നും മന്ത്രി വ്യക്തമാക്കി

എസ്ആർ ഒ അറിയിച്ചു ലാന്റർ ചന്ദ്രനിൽ എവിടെ യാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇതുവരെ ബന്ധംസ്ഥാപിക്കാൻ കഴി ഞ്ഞിട്ടില്ലെന്നും ഐ എസ് ആർ ഒ

ഉടൻ ബന്ധം സ്ഥാപി ക്കുമെന്നും അവർ അറിയിച്ചു മരടിലെ ്ഫ്ളാറ്റുകൾ പൊളിക്കുന്ന കാര്യത്തിൽ തുടർനടപടികൾ ആലോചിക്കുന്നതിന് നഗരസഭയുടെ പ്രത്യേക കൌൺസിൽ യോഗം കൊച്ചിയിൽ ആരംഭിച്ചു ചെയർപേഴ്സൺ ടി എച്ച്

കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടികൾ സാങ്കേതിക സാമ്പത്തിക കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട സഹകരണം എന്നിവ യോഗ ത്തിൽ ചർച്ചയാവും ഫ്ളാറ്റ് പൊളിക്കാൻ താൽപര്യപത്രം ക്ഷണിച്ച് നഗരസഭ പത്രങ്ങളിൽ പരസ്യം നൽകിയിട്ടുണ്ട്

അതിനിടെ ഫ്ളാറ്റുകളിൽനിന്ന് മാറണമെന്ന് കാണിച്ച് നഗരസഭ ചൊവ്വാഴ്ച ഉടമകൾക്ക് നോട്ടീസ് നൽകും ഇതുസംബന്ധിച്ചും ഇന്നത്തെ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും

മരടിലെ ഫ്ളാറ്റ് പൊളിച്ചുനീക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയ ത്തിൽ ഫ്ളാറ്റ് ഉടമകൾ നിയമാനുസൃത വഴിതേടണമെന്ന് കേന്ദ്ര സഹ മന്ത്രി വി

നിയമത്തിനുവിധേയമായി ഫ്ളാറ്റ് ഉടമ കളെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ കേന്ദ്രഗവൺമെന്റ് അത് ചെയ്യു മെന്ന് അദ്ദേഹം കൊച്ചിയിൽ അറിയിച്ചു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കളുമായി യു ഡി

ഡി

കൺവീനർ ബെന്നി ബെഹ്നാന്റെ നേതൃത്വത്തിൽ ഉച്ചുകഴിഞ്ഞ് മൂന്നിന് കോട്ടയം ഡി സി

എല്ലാവരെയും സഹകരിപ്പിച്ച് കേരളകോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് ജോസ്

മാണി കോട്ടയത്ത് അറിയിച്ചു

ഒറ്റക്കെട്ടാണെന്നും വിവാദങ്ങളിൽ താൽപര്യമില്ലെന്നും അദ്ദേഹം വൃക്തമാക്കി പാലാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങുന്ന കാര്യം ഇന്നത്തെ യു

എഫ് ഉപസമിതി ചർച്ചയ്ക്കുശേഷം തീരുമാനിക്കുമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി

മോൻസ് ജോസഫിനെയും ജോയി എബ്രഹാമി നെയും ചർച്ചയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പി

ജോസഫ് അറിയിച്ചു കോഴിക്കോട് നൻമണ്ടയിൽ ദീൻ ദയാൽ ഗ്രാമ സേവാ സമിതിയുടെ ശിലാസ്ഥാപനം വിദേശകാര്യ സഹമന്ത്രി വി

സമൂഹത്തിന്റെ പുരോഗതി ഗവൺമെന്റിനെ കൊണ്ട് മാത്രം നിർവഹിക്കാനാവില്ലെന്നും സമൂഹം ഒന്നടങ്കം പങ്കാളികളാണമെന്നും മന്ത്രി പറഞ്ഞു സംഘടനാ സംവിധാനം പുതിയ രീതിയിൽ ഉടച്ചുവാർക്കാൻ എ

പ്രേരക്മാരെ പ്രത്യേകമായി നിയമിച്ച് പാർട്ടി പ്രവർത്തനം താഴെതട്ടിൽ എത്തിക്കാനാണ് ശ്രമം

കവളപ്പാറ ഉരുൾപൊട്ടലിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവരെ ആറുമാസത്തിനകം പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി കെ ടി ജലീൽ അറി യിച്ചു ഇതിനായി ഒരുസ്ഥലത്തുതന്നെ ഭൂമി കണ്ടെത്തി വീട് നിർമിച്ചുനൽകുമെന്നും മന്ത്രി പറഞ്ഞു

പ്രളയത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവരെ പുനരധി വസിപ്പിക്കാനും നാശനഷ്ടം വിലയിരുത്തി ദുരിതബാധിതരെ രക്ഷിക്കാനും പി വി അബ്ദുൾ വഹാബ് എംപി രക്ഷാധി കാരിയും പി വി അൻവർ എംഎൽഎ ചെയർമാനുമായി രൂപംനൽകിയ റീബിൽഡ് നിലമ്പൂർ രാജ്യത്തിനാകെ മാതൃകയാണെന്ന് ജലീൽ പറഞ്ഞു

കഴിഞ്ഞ യോഗൃതാ മത്സരത്തിൽ ഒമാനോട് ഇന്ത്യ പരാജയപ്പെട്ടിരു ന്നു

സി പരീക്ഷയുടെ ചോദ്യ കടലാസുകൾ ഇംഗ്ലീഷിനൊപ്പം മലയാളത്തിലും വേണമെന്ന ആവശ്യം സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണ റായി വിജയൻ തിങ്കളാഴ്ച പി എസ്

കഴിഞ്ഞ ദിവസം ചേർന്ന് ഔദ്യോഗിക ഭാഷാ ഉന്നതതലയോഗത്തിൽ ഈ പ്രശ്നം സംബന്ധിച്ച് പി

തുടർച്ചയായ അവധി കാരണമാണ് ചർച്ച തിങ്ക ളാഴ്ചത്തേക്കുമാറ്റിയത്

വനിതാ സംരംഭകത്വം പ്രോത്സാ ഹിപ്പിക്കുക ലിംഗ സമത്വം സുസ്ഥിരമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ യാണ് കേന്ദ്രം സ്ഥാപിക്കുന്നത് കേരളത്തിലെ വനിതകൾ സംരംഭകത്വ ത്തിലേക്കും സ്വയം തൊഴിലുകളിലേക്കും ചുവടുറപ്പിക്കുന്ന കാലത്ത് സുപ്രധാന നീക്കമാണിതെന്ന് ശൈലജ പറഞ്ഞു കുട്ടികൾക്കെതിരായ അക്രമവും പീഡനങ്ങളും ഇല്ലാതാക്കുന്നതിന് സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന തിനായി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ വെള്ളിയാഴ്ച സന്ദേശ പ്രചരണ ബൈക്ക് റാലി നടത്തുമെന്ന് ചെയർ പേഴ്സൺ പി

കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു ഞായറാഴ്ച തിരുവനന്തപുരത്ത് ആദ്യഘട്ട റാലി സമാപിക്കും കോഴിക്കോട് കോട്ടക്കൽ എറണാകുളം ആലപ്പുഴ എന്നിവിടങ്ങളിൽ റാലിക്ക് സ്വീകരണം നൽകും ദേശീയ സന്ദേശ യാത്രയും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പി സുരേഷ് അറിയിച്ചു കേസ് രജിസ്റ്റർ ചെയ്തത് മുതൽ ചാർജ്ജ്ഷീറ്റ് സമർപ്പിച്ച് കോടതി വിധി അടക്കം കാര്യങ്ങൾ തത്സമയം പരാതിക്കാരന്റെ മൊബൈൽഫോ ണിൽ സന്ദേശമായി ലഭിക്കുന്നതിന് പൊലീസ് സംവിധാനം ഏർപ്പെടു ത്തിയതായി സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയി ച്ചു കേസിന്റെ പുരോഗതി ഡിജിറ്റൽ മാർഗ്ഗത്തിലൂടെ അറിയിക്കണമെന്ന ജനങ്ങളുടെ ആഗ്രഹമാണ് ഇതുവഴി പൂർത്തീകരിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ഈ സംവിധാനം വഴി വിവരങ്ങൾ ലഭിക്കു ന്നതിന് പരാതി നൽകുമ്പോൾ തന്നെ മൊബൈൽ നമ്പറും ലഭ്യമാക്കണ മെന്ന് ഡി ജി പി അറിയിച്ചു

വൃവസായികളായ മാത്യു സാമുവൽ സുശീൽ ആറോൺ ടി

പ്രദീപൻ എന്നിവരാണ് അവാർഡിന് അർഹരായ തെന്ന് ചേമ്പർ പ്രസിഡന്റ് വിനോദ് നാരായണൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ ചേമ്പർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് സമ്മാനിക്കും സ്വർണ വിലയിൽ കുറവ്

രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പകളുടെ പലിശ നിരക്ക് കുറച്ചു